ത സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്നലെയും ഏഴായിരത്തിലേറെപേർക്ക് രോഗബാധ

ത ഇന്നലെ അന്തരിച്ച കേരളാ കോൺഗ്രസ് നേതാവ് സി എഫ് തോമസിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപ്പൊലീത്തൻ പള്ളി സെമിത്തേരിയിൽ

വാർത്തകൾ വിശദമായി പാർലമെന്റ് പാസ്സാക്കിയ മൂന്ന് കാർഷിക പരിഷ്കരണ ബില്ലുകൾക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകി കാർഷികമേഖലയുടെ പുരോഗതിയും കർഷകരുടെ വരുമാന വർധനയും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബില്ലുകളിലാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് കാർഷികോത്പന്ന വാണിജ്യ വ്യാപാര പ്രോത്സാഹന ബിൽ കർഷക ശാക്തീകരണ സേവന സംരക്ഷണ ബിൽ അവശ്യസാധന ഭേദഗതി ബിൽ എന്നിവ കഴിഞ്ഞ ആഴ്ച പാർലമെന്റ് പാസ്സാക്കിയിരുന്നു കാർഷികോല്പ്പന്നങ്ങളുടെ വിൽപനക്ക് ഓൺലൈൻ സംവിധാനം വില സ്ഥിരത കാർഷിക സേവനങ്ങൾ ഉറപ്പാക്കൽ എന്നിവ ബില്ലുകൾ വ്യവസ്ഥ ചെയ്യുന്നു രുദ കാർഷിക ബില്ലുകൾക്കെതിരെ കോൺഗ്രസ് രാവിലെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും

സി സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പ്രവർത്തകസമിതി അംഗം ഉമ്മൻചാണ്ടി തുടങ്ങിയവർ മാർച്ചിന് നേത്വത്വം നൽകും ദേദ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അവഹേളനങ്ങളും അപകീർത്തി പ്രചാരണവും ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി മാധ്യമ സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശ നിയമ നടപടികൾ കൈക്കൊള്ളും ഇപ്പോഴത്തെ നിയമം കൊണ്ട് ഇത്തരം നടപടികൾ തടയാനാവില്ലെങ്കിൽ തക്കതായ നിയമ നിർമ്മാണത്തെപ്പറ്റി ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നിലവിൽ ഉയർന്ന പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിയമം കൈയിലെടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ദ്ദേ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഒരുതരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി കെ

സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും ഇത്തരം പോസ്റ്റിടുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു യൂട്യൂബിലൂടെ അധിക്ഷേപ പോസ്റ്റിട്ട വിജയ്

ഇതിനു പുറമെ ശാന്തിവിള ദിനേശ് എന്നായാൾക്കെതിരെ മറ്റൊരു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി മന്ത്രി അറിയിച്ചു പൊതു സമൂഹമാകെ ഇത്തരക്കാർക്കെതിരെ മുന്നോട്ടു വരണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു ദേദ സംസ്ഥാനത്ത് ഇന്നലെയും തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് ബാധിതരുടെ എണ്ണം ഏഴായിരം കവിഞ്ഞു

പാലക്കാട് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇന്നലെ നാനൂറിന് മുകളിൽ രോഗബാധിതരെ കണ്ടെത്തി

ഒക്ടോബർ മൂന്നിനേ ഓഫീസ് തുറക്കൂവെന്ന് താലൂക്ക് സപ്പൈ ഓഫീസർ അറിയിച്ചു രുമ കോവിഡ് വ്യാപനം രൂക്ഷമായ കോഴിക്കോട്ട് ജില്ലാ ഭരണകൂടം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സമ്പർക്ക രോഗവ്യാപനം ഇനിയും കൂടിയേക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

കോർപ്പറേഷൻ പരിധിയിൽ തന്നെ രണ്ട് കോവിഡ് ക്ലസ്റ്ററുകളും കണ്ടെത്തി

ഈ മാസം ആദ്യം പ്രതിവാര കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നാലു ശതമാനമായിരുന്നത് അവസാന വാരത്തിലെത്തുമ്പോൾ പത്തു ശതമാനമായി ഉയർന്നു

ഷോപ്പിംഗ് മാളുകൾ കോംപ്ലക്സുകൾ ഹാർബറുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നിയന്ത്രിക്കും

കളിസ്ഥലങ്ങൾ ജിംനേഷ്യം ടർഫ് നീന്തൽകുളങ്ങൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ കോവിഡ് മുക്തയായ ഗർഭിണിയെ വീണ്ടും രോഗ പരിശോധന ആവശ്യപ്പെട്ട് ചികിത്സ നിഷേധിച്ച ആശുപത്രികൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു കൊണ്ടോട്ടി കിഴിശ്ശേരിയിലെ ഷെരീഫിന്റെ ഭാര്യ സഹലക്ക് മഞ്ചേരി മെഡിക്കൽ കോളജും മറ്റ് മൂന്ന് ആശുപത്രികളും ചികിത്സ നിഷേധിച്ചിരുന്നു

യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ആന്റിജൻ പരിശോധനാഫലം പോരെന്നും ആർ

ആർ ഫലം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആശുപത്രികൾ ചികിത്സ നൽകാതിരുന്നത് ദേഴ ഗ്രാമ പഞ്ചായത്തുകളിൽ നിന്നു ലഭിക്കുന്ന ഇരുനൂറിലധികം സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന ഇന്റലിജന്റ് ഇ ഗവേണൻസ് സംവിധാനം ഇന്ന് സംസ്ഥാനത്ത് നിലവിൽ വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വീഡിയോ കോൺഫ്രൻസിലൂടെ ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്യും

രുഭ ഇന്നലെ അന്തരിച്ച കേരളാ കോൺഗ്രസ് നേതാവും എം

എ യുമായ സി എഫ് തോമസിന്റെ സംസ്കാരം ഉച്ച കഴിഞ്ഞ് മൂന്നിന് ചങ്ങനാശേരി സെന്റ് മേരീസ് മെത്രാപ്പോലീത്തൻ പള്ളി സെമിത്തേരിയിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും

രുര തിരുവനന്തപുരം കിളിമാനൂരിനടുത്ത് കരയേറ്റയിൽ പുലർച്ചെ ഒരു മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ നാലുപേർ മരിച്ചു വെഞ്ഞാറമൂട് കഴക്കൂട്ടം സ്വദേശികളായ നജീബ് സുൽഫി ഷമീർ ലാൽ എന്നിവരാണ് മരിച്ചത് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ചായിരുന്നു അപകടം ഒരാൾക്ക് പരിക്കേറ്റു ദേദ കായിക വകുപ്പ് നിർമ്മിച്ച നാല് സ്റ്റേഡിയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലയിലെ പിലാത്തറ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര തൃശൂരിലെ കുന്നംകുളം കൈപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം

ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും രേര കേരളാ ഹിന്ദി പ്രചാരണ സഭ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഹിന്ദി പക്ഷാഘോഷം ഇന്ന് സമാപിക്കും

കേന്ദ്രീയ ഹിന്ദി ഡയറക്ടർ പ്രൊഫ രമേഷ് കുമാർ പാണ്ഡെ അധ്യക്ഷനായിരിക്കും രെ പാലാരിവട്ടം മേൽപ്പാലം ഡി എം ആർ

മെട്രോമാൻ ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിലായിരിക്കും രാവിലെ ഒമ്പത് മുതൽ ഇതിന്റെ ജോലികൾ തുടങ്ങുന്നത് പകലും രാത്രിയുമായി ജോലി പൂർത്തിയാക്കും പാലത്തിന്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ചെല്ലാനത്ത് കടലാക്രമണം തടയുന്നതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി ജി

എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും പാലത്തിന്റെ പുനർ നിർമ്മാണം കേരളത്തിന്റെ നിർമ്മാണ ചരിത്രത്തിൽ ഏറ്റവും മികച്ച നിർമ്മിതിയായിരിക്കും പുതിയ പാലമെന്ന് മന്ത്രി ജി സുധാകരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു രുമ എറണാകുളം തേക്കടി സംസ്ഥാനപാതയുടെ ഭാഗമായ പുള്ളിക്കാനം കുവിലേറ്റം റോഡ് നാളെ മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

രുദ ഇടുക്കി പൈനാവിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിച്ച ജില്ലാ ഫിഷറീസ് കാര്യാലയം രാവിലെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

രേര കേരളത്തിലെ കയർ വ്യവസായ മേഖലയെ പ്രതാപത്തിലേക്ക് തിരികെയെത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോ

കയർ പ്രോജക്ടിന് കീഴിൽ കണ്ണൂർ അഴീക്കോട്ടെ കയർ വ്യവസായ സഹകരണ സംഘത്തിന് അനുവദിച്ച സ്പിന്നിങ് മെഷീനുകളുടെ പ്രവർത്തനം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ശ്രേയാംസ് കുമാർ എം